തമിഴ്നാടും പുതുച്ചേരിയും ഇന്ന് വിധിയെഴുതും സംസ്ഥാനത്തെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ നാലുദിവ സംമാത്രം ബാക്കിനിൽക്കെ തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടു പിടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും ക്രിമിനൽകേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്തു ന്നതിൽ സ്ഥാനാർഥികൾ വീഴ്ചവരുത്തിയാൽ കോടതിയലക്ഷ്യ ത്തിന് കാരണമാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ സംസ്ഥാനത്ത് പരക്കെ വേനൽമഴ എറണാകുളത്ത് ഇടിമിന്നലേറ്റ് രണ്ടുപേർ മരിച്ചു യേശുദേവന്റെ അന്ത്യഅത്താഴത്തിന്റെ ഓർമപുതുക്കി ക്രൈസ്ത വർ ഇന്ന് പെസഹ ആചരിക്കുന്നു

കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ്

വൻതോതിൽ പണം പിടിച്ചെടുത്തതിനെ ത്തുടർന്ന് വെല്ലൂരിലെ വോട്ടെടുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്

സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനി ക്കാൻ നാലുദിവസംമാത്രം ബാക്കിനിൽക്കെ തിരഞ്ഞെടുപ്പ് രംഗം കൂടു തൽ ചൂടുപിടിച്ചു വോട്ടർമാരെ സ്വാധീനിക്കാൻ വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് പര്യടനം തുടരുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും ബി

അധ്യക്ഷൻ അമിത്ഷായും പര്യടനം പൂർത്തിയാക്കി ് തിരിച്ചുപോയി

പരസ്യപ്രചാ രണം ഞായറാഴ്ച വൈകീട്ട് അവസാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് വീണ്ടും കേരളത്തിലെത്തും

സ്ഥാനാർഥികളുടെ പ്രചാരണത്തി നായി സംഘടിപ്പിക്കുന്ന മഹാസമ്മേളനം മോദി ഉദ്ഘാടനം ചെയ്യും

രാജ്യസഭാ പ്രതിപക്ഷനേതാവ് ഗുലാംനബി ആസാദും പഞ്ചാബ് മന്ത്രി നവജോദ് സിങ് സിദ്ദുവും യു

സ്ഥാനാർഥികളുടെ പ്രചാര ണത്തിനായി ഇന്ന് കേരളത്തിലെത്തും ആലുവ ചാവക്കാട് പൊന്നാ നി പട്ടാമ്പി മലപ്പുറം എന്നിവിടങ്ങളിൽ ഗുലാംനബി ആസാദ് പ്രചാര ണയോഗങ്ങളിൽ പങ്കെടുക്കും നവജോദ് സിങ് സിദ്ദു കോഴിക്കോട് വട കര വയനാട് മണ്ഡലങ്ങളിലെ പരിപാടികളിലാണ് പങ്കെടുക്കുക

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് വയ നാട്ടിലെ ബത്തേരിയിലും മലപ്പുറം എടപ്പാളിലും എൽ

പൊതു സമ്മേളനത്തിൽ പ്രസംഗിക്കും

ഐഎം പോളിറ്റ്ബ്യൂറോ അംഗങ്ങളായ പ്രകാശ്കാരാട്ട് സുഭാഷിണി അലി ഭരണപരിഷ്കരണ കമ്മിഷൻ അധ്യക്ഷൻ വി

അച്യുതാനന്ദൻ എന്നിവർ ഇന്ന് പാലക്കാട് ജില്ലയിലെ വിവിധ എൽ

എഫ് തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പാലക്കാട് ജില്ലയിലെ ചലി ശ്ശേരിയിൽ യു

ഭാരതത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കൽപം ഇല്ലാതാക്കാനാണ് ബി

ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന നിരാശ ഇന്നില്ലെന്നും നിരാശ പ്രത്യാശയായി മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോഴിക്കോട്ട് എൽ

രാജ്യത്തിന്റെ സമ്പൂർണ വികസനത്തിനാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറ ഞ്ഞു ആചാരവും അനുഷ്ഠാനവും രാജ്യത്തിന്റെ പാരമ്പര്യമാണെന്ന് അദ്ദേഹം വണ്ടൂരിൽ എൻ

തിരഞ്ഞെടുപ്പ് യോഗത്തിൽ വ്യക്ത മാക്കി അഴിമതിയുടെയും അക്രമത്തിന്റെയും വക്താക്കളായ കോൺഗ്ര സിനെയും സി

എമ്മിനെയും ജനങ്ങൾ പിന്തള്ളുമെന്ന് പീയുഷ് ഗോയൽ കോഴിക്കോട്ട് പറഞ്ഞു വർഗീയത അഴിച്ചുവിട്ട് കേരള സമൂഹത്തിൽ ധ്രുവീകരണമുണ്ടാ ക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തെ പിണറായി ഗവൺമെന്റ് പിന്തു ണയ്ക്കുന്നതായി കോൺഗ്രസ് പ്രവർത്തകസമിതിയംഗം എ

പത്തനംതിട്ട ചുങ്കപ്പാറയിൽ യു

തിരഞ്ഞെ ടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നത് നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിലാ ണെന്ന് സി

ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെ ടുത്തി അങ്കമാലിയിലും ചാലക്കുടിയിലും തൃശൂരിലും എൽ

തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു യെച്ചൂരി

മുരളീധരൻ എം

പത്തനംതിട്ട റാന്നിയിൽ എൻ

തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം വയനാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ച് ഇടതുപക്ഷത്തെ പ്രകീർത്തിക്കുന്ന രാഹുൽഗാന്ധിയുടെ നയം ഇരട്ടത്താപ്പാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറ ഞ്ഞു കേരളത്തിൽവന്ന് ബി

കാസർകോട് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രിമിനൽകേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന തിൽ സ്ഥാനാർഥികൾ വീഴ്ച വരുത്തിയാൽ കോടതിയലക്ഷ്യത്തിനും തിരഞ്ഞെടുപ്പ് ഹർജികൾക്കും പരിഗണിക്കാവുന്ന കാരണമാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു നിശ്ചിത ഫോർമാറ്റിൽ പ്രദേശത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും പ്രധാന ടി വി ചാന ലുകളിലും മൂന്ന് വൃതൃസ്ത ദിവസങ്ങളിൽ പരസ്യം നൽകണം അതത് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരമുള്ള പ്രമുഖ പത്രങ്ങളിലാണ് പരസ്യം നൽകേണ്ടത്

അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ മുസ്ലിം ലീഗ് നൽകിയ പരാതി ഉചിതമായ നടപടികൾക്കായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിഷന് അയച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ആറ്റിങ്ങലിലെ ബി

സ്ഥാനാർഥി മുഖൃതിരഞ്ഞെടുപ്പ് ഓഫീ സർക്കെതിരെ പ്രസംഗിച്ചതു സംബന്ധിച്ച് ഡി

ഈ പ്രസംഗവും വീഡിയോയും ചൊപ്പാഴ്ച തിരുവനന്തപുരം ബി ജെ

ഇതേക്കുറിച്ച് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാംമീണ ആവശ്യപ്പെട്ടിരിക്കുന്നത്

സ്ഥാനാർഥിക്കെതിരായ വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന നിഗമനത്തെത്തുടർന്ന് നിയമാ നുസൃത നടപടി സ്വീകരിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ കനത്ത വേനൽച്ചൂടിന് ആശ്വാസമേകി പരക്കെ വേനൽമഴ ലഭിച്ചു

അഞ്ച്ദിവസംകൂടി വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് തിരു വനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രത്തിന്റെ മ്രുന്നറിയിപ്പ് മല പ്പുറം ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതി നാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് വേനൽമഴ തുടരുമെ ങ്കിലും ചൂട് ഇനിയും ഉയരുമെന്നും സൂര്യാഘാതത്തിനും സൂര്യാതപ ത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു

ഇന്നലെ വൈകീട്ട് ഇരുവരും വീടിന്റെ പിന്നിലെ വരാന്തയിൽ നിൽക്കുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത് കായംകുളം കരിയിലക്കുളങ്ങരയിൽ ഒരു വീട്ടമ്മയ്ക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റു കനത്ത മഴയിലും കാറ്റിലും പാലക്കാട് ശ്രീകൃഷ്ണപുരത്തും പരി സരപ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം ഉണ്ടായി നിരവധി മരങ്ങളും വൈദ്യുത തൂണുകളും പൊട്ടിവീണു പ്രദേശത്തെ വാഴകൃഷിക്ക് കാറ്റ് വലിയതോതിൽ നാശം വിതച്ചു ശക്തമായ വേനൽമഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെത്തുടർന്ന് മൂന്നാർ കുണ്ടള അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു

യേശുദേവന്റെ അന്ത്യഅത്താഴത്തിന്റെ ഓർമപുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു അന്ത്യ അത്താഴത്തിന് മുമ്പ് യേശു ശിഷ്യ രുടെ പാദം കഴുകിയതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽകഴു കൽ ശുശ്രുഷ നടക്കും വീടുകളിൽ അപ്പം മുറിക്കൽ ചടങ്ങും ഉണ്ടാ കും പീഢാനുഭവാചരണത്തോടനുബന്ധിച്ച് കോട്ടയം കുടമാളൂർ സെന്റ് മേരീസ് പള്ളിയിലെ പ്രശസ്തമായ നീന്ത് നേർച്ചയ്ക്ക് രാവിലെ ആറേ കാലോടെ തുടക്കമായി ദുഃഖവെള്ളിയാഴ്ച രാത്രി പത്തരവരെ നേർച്ച തുടരും ഇടുക്കി പൊൻമുടി ജലാശയത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനി റങ്ങിയ യുവാവിനെ കാണാതായി

വെട്ടുകല്ലുമ്മാക്കൽ സുബീഷിനെയാണ് കാണാതായത് ഇന്ന് രാവിലെ സ്കൂബാ ഡൈവിങ് സംഘം എത്തി തിരച്ചിൽ പുനരാരംഭിക്കും കോഴിക്കോട് കൊയിലാണ്ടിയിൽ കാർ മരത്തിലിടിച്ചുണ്ടായ അപ കടത്തിൽ ഒരാൾ മരിച്ചു കോഴിക്കോട് ആകാശവാണിയിൽ കാഷൽ അനൌൺസറും അധ്യാപികയുമായ സി

അനിതയാണ് മരിച്ചത്

മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് സംസ്ഥാനങ്ങ ളിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞദിവസം അൻപ തിലേറെപ്പേരാണ് മരിച്ചത് വസ്തുവകകൾക്കും വിളകൾക്കും വൻതോ തിൽ നാശനഷ്ടമുണ്ടായി ഹൈദരാബാദിൽ ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിംഗ് സിനെ സൺറൈസേഴ് സ് ഹൈദരാബാദ് ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി

ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ

സമദൂരനിലപാടിൽ ഉറച്ചുനിൽക്കുമെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്ത മാക്കി ശബരിമല സംബന്ധിച്ച എൻ

എസിന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും എന്നാൽ രാഷ്ട്രീയമായി സമദൂരനിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു

ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ വിഭാഗമായ ഇടുക്കി ജില്ലാ സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓൺലൈൻ വോട്ടർകിസ് മത്സരത്തിൽ കണ്ണൂരിലെ സൂര്യകുമാർ ഒന്നാംസ്ഥാനം കരസ്ഥമാക്കി ഇടുക്കി വാഴത്തോപ്പിലെ ജൂലിയൻ ജോസഫിനാണ് രണ്ടാംസ്ഥാനം

ജയശ്രീ വി

ഇതിൽ മൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തു ട്രെയിനുകളിൽ സ്ഥിരം മോഷണം നടത്തുന്നയാളെ തൃശൂരിൽ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസിൽനിന്ന് യാത്രക്കാരന്റെ പണവും മൊബൈൽഫോണും അട ങ്ങിയ ബാഗ് മോഷണം ചെയ്യാൻ ശ്രമിച്ച ചിറയിൻകീഴ് തോപ്പിൽതെരുവ് വീട്ടിൽ സെബാസ്റ്റ്യൻ എന്ന അഷറഫിനെയാണ് പിടികൂടിയത്